കൊറോണ വൈറസ് നിരീക്ഷണത്തിന് കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതിയിട്ടുണ്ട് തായ്ലന്റിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും ഇന്ത്യയിലെത്തുന്നവരെകൂടി വിമാനത്താവളങ്ങളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതി വ്യക്തിപരമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ഡോക്ടർ ഹർഷ് വർദ്ധൻ പറഞ്ഞു രുദ വൈറസിനെകുറിച്ച് അറിയുന്നതും പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നതുമാണ് കൊറോണ വൈറസിനെ തടയുന്നതിന് പ്രധാനമാർഗ്ഗമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

ദരര കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട സംശയങ്ങളും ആശങ്കകളും അകറ്റുന്നതിനും വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുമായി ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയ വീഡിയോ ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ടിനാണ് സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രദർശിപ്പിക്കുന്നത് ദേദ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ ഇന്ന് സാമ്പിൾ പരിശോധന ആരംഭിക്കുമെന്ന് മന്ത്രി കെ

ഇതുവരെ പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയിരുന്ന പരിശോധന ആലപ്പുഴയിലേക്ക് മാറ്റുന്നതോടെ ഫലം ലഭിക്കുന്നതിലെ കാലതാമസം ഒഴിവാകുമെന്നും മന്ത്രി പറഞ്ഞു ആലപ്പുഴ ജില്ലയിൽ ഒരാൾക്ക് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കലക്ട്രേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജില്ലയിലെ മെഡിക്കൽ കൺട്രോൾ റൂം കലക്ട്രേറ്റിലേക്ക് മാറ്റി ശക്തിപ്പെടുത്തുമെന്നും ശൈലജ അറിയിച്ചു സംസ്ഥാനത്ത് കൊറോണ വൈറസ് സ്ഥിരീകരിച്ച രണ്ടുപേരുടെയും ആരോഗ്യസ്ഥിതിയിൽ ആശങ്കപ്പെടാനില്ലെന്നും മന്ത്രി വ്യക്തമാക്കി സ്വകാര്യ ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡുകൾ ക്രമീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി മന്ത്രിമാരായ ജി സുധാകരൻ പി തിലോത്തമൻ എന്നിവരും അവലോകന യോഗത്തിൽ പങ്കെടുത്തു ദേഴ സംസ്ഥാനത്ത് കൊറോണ വൈറസ് ബാധക്കെതിരെ ജാഗ്രതയും നിരീക്ഷണവും ശക്തിപ്പെടുത്തിയതായി ആരോഗ്യ ഡയറക്ട്രേറ്റ് കൺട്രോൾ റൂം നോഡൽ ഓഫീസർ തിരുവനന്തപുരത്ത് അറിയിച്ചു

വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ രോഗലക്ഷണങ്ങളോടുകൂടി നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന വിദ്യാർത്ഥിനിയെ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശ പ്രകാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേയ്ക്ക് മാറ്റി

തളിക്കുളത്ത് ചൈനയിൽ നിന്നെത്തിയ എട്ടു പേർ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നു എന്നാൽ ഇവർക്ക് രോഗബാധ കണ്ടെത്തിയിട്ടില്ല ദേഴ ഐസൊലേഷൻ വാർഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് വെന്റിലേറ്റർ തുടങ്ങിയ സൌകര്യങ്ങളുള്ള സ്വകാര്യ ആശുപത്രികൾ അടിയന്തര ഘട്ടത്തിൽ കൊറോണ ചികിത്സയ്ക്കായി മുന്നോട്ട് വരുമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരത്ത് അറിയിച്ചു

അഭിഭാഷകർ യോഗം ചേർന്ന് തീരുമാനിച്ച ഉപചോദ്യങ്ങളടക്കം പരിഗണനാ വിഷയങ്ങളുടെ പട്ടിക ചീഫ് ജസ്റ്റിസിന് കൈമാറിയിരുന്നു ദർദ സ്വകാര്യ ബസ് ഉടമ പ്രതിനിധികളുമായി മന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ന് രാവിലെ കോഴിക്കോട് ഗസ്റ്റ്ഹൌസിൽ ചർച്ച നടത്തും നിരക്ക് വർധന ആവശ്യപ്പെട്ട് സ്വകാര്യബസുടമകളുടെ സംയുക്തസമരസമിതി നാളെ അനിശ്ചിതകാല സമരം ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് ചർച്ച

കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആദ്യപകുതിയിൽ ഗോകുലം ഒരു ഗോളിന് മുന്നിട്ട് നിന്ന ശേഷമാണ് രണ്ടാം പകുതിയിൽ സമനില ഗോൾ വഴങ്ങിയത്

മറ്റൊരു മത്സരത്തിൽ ചർച്ചിൽ ബ്രദേഴ്സ് ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് നെരോക്ക എഫ് സി യെ പരാജയപ്പെടുത്തി ദേഴ സൈക്സിംഗ് ആർച്ചറി തുടങ്ങിയ കായിക ഇനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് അസോസിയേഷൻ ഭരണസമിതിയംഗവും ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റും അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ പ്രസിഡന്റുമായ ഡോക്ടർ നരേന്ദ്ര ധ്രുവ് ബത്ര പറഞ്ഞു ഫുട്ബോൾ വോളിബോൾ തുടങ്ങി ഏതാനും കായിക ഇനങ്ങൾ മാത്രം ജനപ്രിയമാകുന്ന പ്രവണത മാറണമെന്നും പരിശീലനത്തിനുകൂടി ഉപയോഗിക്കാനാകുംവിധം ഒരു സ്റ്റേഡിയത്തിൽ രണ്ട് ഗ്രൌണ്ടുകൾ ഉണ്ടെങ്കിൽ അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കൊല്ലം ആശ്രാമം ന്യൂ ഹോക്കി സ്റ്റേഡിയത്തിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു നരേന്ദ്ര ധ്രുവ് ബത്ര

മെഴ്സിക്കുട്ടിയമ്മയോടൊപ്പം അദ്ദേഹം അനാവരണം ചെയ്തു രുദ കണ്ണൂരിൽ നടന്ന സംസ്ഥാന ബീച്ച് വോളി ബോളിൽ പുരുഷ വിഭാഗത്തിൽ കോഴിക്കോടും വനിതാ വിഭാഗത്തിൽ തിരുവനന്തപുരവും ചാമ്പ്യന്മാരായി ഫൈനലിൽ കോഴിക്കോട് കണ്ണൂരിനെയും തിരുവനന്തപുരം വയനാടിനെയുമാണ് പരാജയപ്പെടുത്തിയത് ദേശ ലോകസമാധാനത്തിനും നിരായുധീകരണത്തിനുമായി ആഗോള സമാധാന സംഘടനയായ വേൾഡ് വിത്തൌട്ട് വാറിന്റെ നേതൃത്വത്തിൽ വേൾഡ് മാർച്ച് ടീം അംഗങ്ങൾ കണ്ണൂരിലെത്തി സ്പെയിനിലെ റാഫേലിന്റെ നേതൃത്വത്തിൽ അഞ്ചംഗ സംഘമാണ് എത്തിയത് സംഘം ഇന്ന് രാവിലെ കണ്ണൂർ ഗാന്ധി സ്ക്വയറിലെ മഹാത്മജി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും ജാഥാംഗങ്ങൾക്ക് കണ്ണൂർ കോർപറേഷൻ സ്വീകരണം നൽകും ദരദ വിദ്യാർഥികൾക്കിടയിൽ വിവിധ തരം ലഹരി ഉപയോഗം വർധിക്കുന്നതായും ഇതിനെതിരെ ഓരോ വീട്ടുകാരും ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു

ചാരായ നിരോധനത്തിന് ശേഷം മറ്റുതരത്തിൽ ലഹരി ഉപയോഗം വർധിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ദേദ ഖാദി ഉൽപന്നങ്ങൾ വാങ്ങാനും പ്രചരിപ്പിക്കാനും ജനങ്ങൾ തയ്യാറാവണമെന്ന് മന്ത്രി ടി

രാമകൃഷ്ണൻ പറഞ്ഞു

രുദ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം മനുഷ്യ സമൂഹത്തിന്റെയും പ്രകൃതിയുടെയും നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് മന്ത്രി ഇ പി ജയരാജൻ അഭിപ്രായപ്പെട്ടു ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ അതിന് ആനുപാതികമായി പ്രകൃതി ചൂഷണവും നടക്കുന്നുണ്ട് അതിനാൽ ജൈവ സമ്പത്ത് സംരക്ഷിച്ച് കൊണ്ടായിരിക്കണം മനുഷ്യർ പുരോഗതി കൈവരിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ലോക തണ്ണീർത്തട ദിനത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി രദേശ തൊഴിൽ നൈപുണ്യത്തോടെ യുവതലമുറയെ വാർത്തെടുക്കാൻ ഗവൺമെന്റ് സജ്ജമാണെന്ന് മന്ത്രി എ സി മൊയ്തീൻ പറഞ്ഞു കുന്നംകുളത്ത് സംസ്ഥാനത്തെ പത്താമത്തെ കമ്യൂണിറ്റി സ്കിൽ പാർക്കിന്റെയും സ്കിൽ മിത്ര അഡ്മിഷൻ എക്സിബിഷന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി രദേശ ജനങ്ങളിൽ ദേശീയ ബോധം വളർത്തുന്നതിൽ വായനശാലകൾ വഹിക്കുന്ന പങ്ക് വലുതാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു

ദേദ ഇടുക്കി കാന്തല്ലൂർ പഞ്ചായത്തിലെ കീഴാർ പാലത്തിന്റെ ഉദ്ഘാടനവും കുട്ടിയാർ കുളന്ത നിയമ്മൻ ഡാം സൈറ്റ് റോഡിന്റെയും കാന്തല്ലൂർ ടൌൺ കുട്ടിവയൽ കുളച്ചി വയൽ കോൺക്രീറ്റ് റോഡിന്റെയും നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി എം

ആംബുലൻസിന്റെ ഫ്ളാഗ്ഓഫ് മന്ത്രി എം

രദേശ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ കടന്നാക്രമിക്കുന്നത് പകർച്ചവ്യാധികളാണെന്ന് മന്ത്രി കെ

കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രുര അരുവിക്കര ജല ശുദ്ധീകരണശാലകളിൽ നടന്ന നവീകരണ പ്രവർത്തനങ്ങളുടെ നാലു ഘട്ടങ്ങളും വിജയകരമായി പൂർത്തിയായി

ദരദ വേമ്പനാട്ട് കായലിൽ സർവീസ് നടത്തുന്ന ഹൌസ് ബോട്ടുകളിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കോട്ടയം ജില്ലാ ഭരണകൂടം നടപടികൾ ഇതു സംബന്ധിച്ച് കളക്ടർ പി കെ സുധീർ ബാബു ആരംഭിച്ചു

തീപിടുത്തത്തെ തുടർന്ന് ദേശീയ പാതയിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു